പിപിധ സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ്

രാജ്യത്ത് കോവിഡ്ട് ബാധിതരുടെ എണ്ണവും ന് മരണ നിരക്കും കുറ്യുന്നതായി ആരോഗൃമന്ത്രാലയം കേരളത്തിൽ പരിശോധനകൾ വർദ്ധിപ്പിച്ചു ഇന്നലെ കൂടുതൽ പേർക്ക് രോഗമുക്തി

റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി

രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് രാഘോപുർ പറു മിനാപൂർ അലോളി ഉൾപ്പെടെയുള്ള എട്ട് നക്സൽ ബാധിത പ്രദേശങ്ങളിൽ വൈകുന്നേരം നാല് വരെയാകും വോട്ടെടുപ്പെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

പൂർണ്ണമായും കോവിഡ്ട് മുന്ദണ്ഡങ്ങൾ പാലിച്ചാകും തെരഞ്ഞെടുപ്പ്

ജെ

ശനിയാഴ്ചയാണ് മൂന്നാംഘട്ടം

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ പ്രതിരോധ നടപടികളും പോളിങ് സ്റ്റേഷനുകളിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഉത്തർപ്രദേശ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അജയകുമാർ ശുക്സ ആകാശവാണി യോട് പറഞ്ഞു

കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് വോട്ടെടുപ്പ്

പട്ടികവർഗ്ഗത്തിനായി സംവരണം ചെയ്ത സീറ്റിൽ എട്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്

ബിജെപിയുടെ എട്ട് സ്ഥാനാർത്ഥികളുടൂ സ്മാജ് വാദി പാർട്ടിയിൽ നിന്നും ബഹുജൻ സമാജ് വാദി പ്പാർട്ടിയിൽ നിന്നും ഓരോ സ്ഥാനാർത്ഥിയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്

എൽ വർമ്മ എന്നിവരാണ് ബിജെപിയുടെ പുതിയ രാ്ജ്യ്സഭാ അംഗങ്ങൾ സമാജ് വാദി പാർട്ടിയിലെ പ്രൊഫ രാം ഗോപാൽ യാദവ് ബി

പി യുടെ രംജി ഗൌതം എന്നിവരാണ് മറ്റ് അംഗങ്ങൾ

മേയ് ജൂൺ മാസങ്ങളിൽ മിഷൻ സാഗറിലൂടെ മാലദ്വീപ് മൌറീഷ്യസ് സീഷെൽസ് മഡഗാസ്കർ കോമോറോസ് എന്നീ രാജ്യങ്ങൾക്ക് ഇന്ത്യ ഭക്ഷണവും മരുന്നും എത്തിച്ചിരുന്നു

മേഖലയിലെ എല്ലാവർക്കുമുള്ള സുരക്ഷയും വളർച്ചയും ഉറപ്പാക്കുകയെന്ന പ്രധാനമന്ത്രിയുടെയും രാജ്യത്തിന്റെയും ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പുതിയ മിഷൻ ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിപണിയിലെ ആവശ്യം വർദ്ധിക്കുന്നിത് പ്രിഗണിച്ചും സമ്പദ് വ്യവസ്ഥയിലെ കൂടുതൽ മേഖലൂക്ട്ൾ പ്രവർത്തന സജ്ജമായ സാഹചര്യത്തിലുമാണ് വായ്പാട്ടു പദ്ചതി നീട്ടിയത്

ഇരകളുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തോടൊപ്പമാണ് തങ്ങളുടെ പ്രാർത്ഥനയെന്ന് ശ്രീ

ഭീകരതയ്ക്കെതിരായ അഫ്ഗാനിസ്ഥാന്റെ ധീരമായ പോരാട്ടത്തിന് ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

എ ഊർജ്ജമന്ത്രാലയവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു

എ മികച്ച പിന്തുണ നൽകിയിട്ടുണ്ട്

പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപും ജോ ബൈഡനും വോട്ടർമാരുടെ പിന്തുണ തേടി ഇന്നലെയും സജീവമായി രംഗത്തെത്തി ട്രംപ് മിഷിഗൺ നോർത്ത് കരോലിന ജോർജിയ ഫ്ളോറിഡ എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തിയപ്പോൾ ബൈഡൻ ഫിലാഡൽഫിയയിൽ നിരവധി തെരഞ്ഞെടുപ്പ് പരിപാടികളാണ് സ്റ്റ്രംഘടിപ്പിച്ചത്

കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

എച്ച് ഒ തലവൻ ടെഡ്രോസ് അഥനോം ഗെബ്രിയേസസ് രോഗനിരീക്ഷണ ത്തിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് പ്രസ്താവന

എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ഉജ്ജല വിജയം

കഴിഞ്ഞ രാത്രി അബുദാബിയിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ആറ് വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത് സൺ റൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള ഇന്നത്തെ മത്സരത്തിന്റെ ഫലം അനുസരിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മൂന്നാമത്തെയോ നാലാമത്തെയോ സ്ഥാനത്തെത്തും

ഇന്ന് ഷാർജയിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

യു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പാച്ചെക്കോയെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു ജനാധിപത്യം നിയമവാഴ്ച സമവായ രൂപീകരണം ബഹുരാഷ്ട്രവാദം എന്നീ ആശയങ്ങളിൽ പാച്ചെക്കോയുടെ നിലപാടുകൾ കൂടുതൽ ശക്തവും കേന്ദ്രീകൃതവുമായ ഒരു പാർലമെന്ററി യൂണിയൻ കെട്ടിപ്പടുക്കാൻ സഹായിക്കുമെന്ന് ശ്രീ

ഇതിനായി ജില്ലയിൽ പുഹാർ പദ്ധതി നടപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ എം

സർക്കാർ സ്കൂളുകളിലും കാര്യാലയങ്ങളിലും സൌരോർജ്ജത്തിന്റെ ഉപയോഗം വ്യാപിപ്പിക്കുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു